പ്രചാരണം ശക്തമാക്കി മുന്നണികൾ ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്

വോട്ട് ചെയ്യാൻ കഴിയാത്തവർക്കുള്ള ബാലറ്റ് പേപ്പറുകളുടെ വിതരണം നിള്ളെ മുതൽ കിഫ്ബിയിൽ ആദായനികുതി വകുപ്പ് പരിശോധന ന് സ്വാഭാവിക നടപടി മാത്രമെന്ന് കിഫ്ബി അധികൃതർ

ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ക്രിക്കറ്റ് ഏകദിനം നാളെ

ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ യോഗാസനത്തെ മത്സര ഇനമായി ഉൾപ്പെടുത്തി

പ്രചാരണത്തിന് ദേശീയ നേതാക്കൾകൂടി എത്തിയതോടെ സംസ്ഥാനമാകെ തെരഞ്ഞെടുപ്പു ചൂടിലാണ്

സ്ഥാനാർത്ഥി സി

പത്മനാഭന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുക്കും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സി

ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരാണ് എൽ ഡി

ആയോ തപാലിലോ ബൂത്ത് ലെവൽ ഓഫീസർമാർ വഴിയോ സമ്മതിദായകരെ വരണാധികാരികൾ മുൻകൂട്ടി അറിയിക്കും ഓരോ ദിവസവും വോട്ട് രേഖപ്പെടുത്തി ലഭിക്കുന്ന കവറുകളുടെ എണ്ണം അസിസ്റ്റന്റ് റിട്ടേണിങ് ഓഫിസർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും കളക്ടർ ഇത് ഇലക്ഷൻ കമ്മിഷനു കൈമാറുകയും ചെയ്യും

കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ

കൊല്ലം ഇരവിപുരം മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

കൊവിഡ് തൊഴിൽമേഖലയിൽ സംജാതമാക്കിയ വെല്ലുവിളികൾ അവസരങ്ങളാക്കാൻ തൊഴിൽ പോർട്ടലിലൂടെ സാധിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

തൃശൂർ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കത്തെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും ശ്രീ

പ്രസ്താവന രാജ്യസഭയിലെ കേരളത്തിൽ നിന്നുള്ള മൂന്ന് ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മരവിപ്പിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിഷന്റെ നടപടി ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സി

രാജ്യൂസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാമനിർദ്ദേശം ഉൾപ്പെടെയുള്ള നടപടി ക്രമങ്ങൾ ആരംഭിച്ചതിനുശേഷം തെരഞ്ഞെടുപ്പ് മരവിപ്പിക്കാൻ എടുത്ത തീരുമാനം നിലവിലുള്ള നിയമസഭാ അംഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു

സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിമാർക്കും എതിരെ കേസെടുക്കാത്തത് ബി ജെ പി സി

എം ഒത്തുകളിയുടെ ഭാഗമാണെന്നും ശ്രീ

യച്ചൂരി കോട്ടയത്ത് പറഞ്ഞു

കൊടുവള്ളി മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർഥി എം

വാട്ടർ അതോറിറ്റി വൈദ്യുതി ബോർഡ് കൊച്ചി മെട്രോ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഏജൻസികൾക്കും സ്വകാര്യ വൃക്തികൾക്കും നിരോധന ഉത്തരവ് ബാധകമാണ്

എന്നാൽ ഇത് സ്വാഭാവിക നടപടി മാത്രമാണെന്ന് ക്കിഫ്ബി അധികൃതർ പറഞ്ഞു

അതേസമയം നടപടി കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു

പശ്ചിമബംഗാൾ അസം കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ എട്ട് വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം വെട്ടിചുരുക്കിയത്

പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കി

കൃഷി നാശവും ഉണ്ടായിട്ടുണ്ട്

ഖേലോ ഇന്ത്യ ഈ വർഷത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ യോഗാസനത്തു ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തിയതായി കേന്ദ്ര കായിക് മന്ത്രി കിരൺ റിജിജു അറിയിച്ചു യോഗയെ ഒരു മത്സര കായിക ഇനമായി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും വികസിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണിത് ദേശീയ് ്യോഗാസന കായിക ഫെഡറേഷനെ കേന്ദ്ര സർക്കാർ ദേശ്രീയ് സ്പോർട്സ് ഫെഡറേഷൻ ആയി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്